എം കോൺഗ്രസ് ആർ

എം എം കോൺഗ്രസ് ആർ

ഡി മഹാസഖ്യ മന്ത്രി സഭ അധികാരത്തിലേക്ക്

ഡി ഒന്നും സീറ്റ് നേടി

ജാർഖണ്ഡ് വികാസ്മോർച്ച മൂന്നും എ

യു രണ്ടും സീറ്റുകളിൽ വിജയിച്ചു

പിക്കും സി

എല്പിനും ഓരോ സീറ്റ് ലഭിച്ചു രണ്ടിടത്ത് കക്ഷിരഹിതർ വിജയം കണ്ടു മുതിർന്ന ബി

പി നേതാവും മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസ് ജംഷഡ്പൂർ ഈസ്റ്റ് മണ്ഡലത്തിൽ കക്ഷിരഹിതനോട് പരാജയപ്പെട്ടു മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ജെ

എം എക്സിക്യൂട്ടീവ് അധ്യക്ഷനുമായ ഹേമന്ത് സോറൻ മത്സരിച്ച രണ്ട് സീറ്റുകളിലും വിജയിച്ചു

പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്കഗാന്ധി വധ്ര മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻസിംഗ് എ

സോണിയാഗാന്ധിയും മറ്റ് നേതാക്കളും ഭരണഘടനയുടെ ആമുഖം വായിച്ച് ഭരണഘട്ടനംസംരക്ഷിക്കുമെന്ന് പ്രതി ജ്ഞയെടുത്തു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ദേശീയ പൌരത്വ ഭേദഗതി നിയമം പ്രതിഷേധവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ ഭാരതീയ അഭിഭാഷക പരിഷത് സംഘടിപ്പിക്കുന്ന സെമിനാർ കോഴിക്കോട്ട് വൈകീട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വീഡിയോ പ്രഭാഷണത്തോടെയാണ് സെമി നാർ ആരംഭിക്കുക രുട്ടിട്ട്ടിട മഹാത്മജിയുടെ നൂറ്റമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ കോഴിക്കോട് ടൌൺഹാ ളിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും യുവജന കൺവെൻഷൻ യുവജന അവാർഡ് വിതരണം മഹാത്മജിയുടെ ജീവിതത്തിലൂടെ ഫോട്ടോ എക്സിബിഷൻ സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണം സച്ഛതാ അവാർഡ് സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് സ്പോർട്സ് മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടക്കും മാധ്യമ പ്രവർത്തകനായിരുന്ന ജിബിൻ പി മൂഴിക്കലിന്റെ അനുസ്മരണത്തിന്റെ ഭാഗ മായി ഒറ്റക്കല്ലിൽ കൊത്തിയതോ ഇന്ത്യ എന്ന വിഷയത്തിൽ രാവിലെ പ്രസ്ക്ലബിൽ നടക്കുന്ന സംവാദത്തിൽ വി മുരളീധരൻ പ്രഭാഷണം നടത്തും രുട്ട്ട്ട്ട്ട്ട്ട്ട കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം നടത്തുന്ന ഏഴാമത് സാമ്പത്തിക സെൻസസിന്റെ കേരളത്തിലെ ഫീൽഡ് പ്രവർത്തന ങ്ങൾ ഇന്ന് ആരംഭിക്കും

കാർഷി കേതര മേഖലയിലുൾപ്പെടെ സ്വന്തം ഉപയോഗത്തിനായുള്ളതൊഴികെ എല്ലാ ത്തരം ചരക്ക് സേവന ഉത്പാദന വിതരണ സംരംഭങ്ങളെയും കണക്കി ലുൾപ്പെടുത്തും

യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യർക്കിടയിൽ അകലം വർദ്ധിക്കുന്നതായും ജാതി മുതൽ വംശം വരെ ഇതിന് കാരണമാ കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആനന്ദ് എഴുത്തിലൂടെ മനുഷ്യർക്കിട യിൽ പാലം പണിതുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

വി സബ്സ്റ്റേഷൻ നെന്മാറ ഇലക്ട്രി ക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടം എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വി സബ്സ്റ്റേഷനുകളുടെ എണ്ണം വർധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒലവക്കോട് കൽപ്പാത്തി ദദ കെ വി സബ് സ്റ്റേഷന്റെ ഉദ് ഘാടനവും കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു

വി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി എം

ഉപയോഗിക്കാതെ കിടക്കുന്ന കൃഷിഭൂമി തരിശുഭൂമി എന്നിവ ഏറ്റെടുത്ത് അവിടെ വൈദ്യുത ഉത്പാദന ത്തിനുള്ള സാധ്യത തേടുമെന്നും മന്ത്രി അറിയിച്ചു

രുട്ടിട്ടിട്ടിട ഓഫീസുകളിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട സൌകര്യങ്ങളുടെ ഗുണഫലം ജ നങ്ങളിലേക്ക് എത്തിക്കാൻ ജീവനക്കാർക്ക് കഴിയണമെന്ന് മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ പറഞ്ഞു കണ്ണൂർ ഇരിട്ടി ലാന്റ് ട്രിബ്യൂണൽ ഓഫീസിന്റെയും ചാ വശേരി റവന്യൂ കാർട്ടേഴ്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആറളം വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മ ന്ത്രി നിർവഹിച്ചു രുട്ടിട്ട്ടിട നെൽവയലുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഗവൺമെന്റ് പ്ര ധാനമായും ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി

കണ്ണൂർ തില്പങ്കേരി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ തരിശുരഹിത ഗ്രാമമാ യി പ്രഖ്യാപിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹ്ഹം

രുട്ടിട്ട്ട്ട്ട്ട്ട പൂനെ സാവിത്രിഭായ് ഫുലെ സർവകലാശാലയിൽ നടന്ന അഖിലേന്ത്യാ അന്തർസർവകലാശാല വനിതാ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല രണ്ടാംസ്ഥാനം നേടി ഫൈനലിൽ ആതിഥേയ സർവക ലാശാലയോടാണ് കാലിക്കറ്റ് പരാജയപ്പെട്ടത്

രുട്ടിട്ട്ട്ട്ട്ട്ട കൊല്ലത്ത് ആരോഗ്യസർവകലാശാല ദക്ഷിണമേഖലാ കലോത്സവ ത്തിൽ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ചാമ്പ്യൻമാരാ യി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളജ് രണ്ടും ശ്രീഗോകുലം മെഡി ക്കൽ കോളജ് മൂന്നും സ്ഥാനങ്ങൾ നേടി രുട്ട്ട്ട്ട്ട്ട്ട്ട കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ സ്പോർട്സ് ഡിവി ഷൻ തുടങ്ങുന്നതിന്റെ ഭാഗമായി കായിക യുവജന മന്ത്രാലയ വകുപ്പ് ഉദ്യോ ഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു നിർമ്മാണം പൂർത്തിയാകുന്ന ഇൻഡോർ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് പവലിയൻ എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി

എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഐ

എ യുമായ തോമസ് ചാ ണ്ടിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്ശേഷം ആലപ്പുഴ കൈനകരി ചേന്ന ങ്കരി പള്ളിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കൈനകരി പൂപ്പള്ളിയിലെ വസതിയിലെത്തി അന്തിമോ പചാരം അർപ്പിക്കും രുട്ടിട്ടിട്ടിട സംസ്ഥാന ഗവൺമെന്റിന്റെ ആർദ്രം മിഷന്റെ സന്ദേശങ്ങൾ ജനങ്ങളി ലെത്തിക്കുന്നതിന് ജനകീയ കാമ്പയിൻ കോട്ടയം ജില്പയിൽ തുടങ്ങി ആ രോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുക വ്യായാമവും കായിക പ്രവർത്ത നങ്ങളും പ്രോത്സാഹിപ്പിക്കുക പൊതുജന മാനസികാരോഗ്യം മെച്ചപ്പെടു ത്തുക ലഹരി നിർമാർജനവും ശുചിത്വവും സംബന്ധിച്ച അവബോധം വ ളർത്തുക എന്നിവയാണ് അടുത്ത മാർച്ച് വരെ നീളുന്ന ക്യാമ്പയിനിന്റെ ല ക്ഷ്യം രുട്ട്ട്ട്ട്ട്ട്ട്ട്ട യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുന്ന ക്രിസ്മസ് ആഘോ ഷത്തിന് ക്രൈസ്തവർ ഒരുക്കങ്ങൾ തുടങ്ങി

പുൽക്കൂ ടുകളും ക്രിസ്മസ് ട്രീയും നക്ഷത്രവിളക്കുകളും ഒരുക്കി ക്രിസ്മസിനെ വര വേൽക്കാൻ ഒരുക്കത്തിലാണ് വീടുകളും ദേവാലയങ്ങളും തിരുപ്പിറവിയു ടെ സന്ദേശവുമായി കരോൾ സംഘങ്ങൾ വീടുകൾ സന്ദർശിക്കും

കർണാടക ബാഗൽകോട്ട സ്വദേശി പ്രദീപ് മേട്ടിനെയാണ് ഒഴു ക്കിൽപ്പെട്ട് കാണാതായത് രുട്ട്ട്ട്ട്ട്ട്ട്ട കാർഷിക വിദ്യാഭ്യാസ വായ്പകളിൽ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പരി ഗണന നൽകാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് ഡീൻ കുര്യാക്കോസ് എം

തൊടുപുഴയിൽ ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രുമ്പ്ട്ട്ടറും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി ദേശീയ തലത്തിൽ സം ഘടിപ്പിക്കുന്ന സർവ്വഭാഷാ കവിസമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് കവി പി രാമൻ പങ്കെടുക്കും ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ വെള്ളി യാഴ്ച രാജ്യത്തെ എല്ലാ അംഗീകൃതഭാഷകളിൽ നിന്നും തെരഞ്ഞെടുത്ത കവികൾ പങ്കെടുക്കുന്ന കവിസമ്മേളനത്തിൽ അദ്ദേഹം കവിത അവതരിപ്പി ക്കും

രുവ്ട്ട്ട്ട്ട്ട്ട സിഗ്നൽ തെറ്റിച്ച് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറ്റിയതിന് കൊച്ചുവേളി എക്സ്പ്രസ്സി ലെ ലോക്കോ പൈലറ്റ് അസിസ്റ്റൻറ് ലോക്കോ പൈലറ്റ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് റെയിൽവേ നടപടി

രണ്ടര മണിക്കൂറോളം തീരദേശ റൂട്ടിൽ ട്രെയിൻ ഗതാഗതവും തടസപ്പെട്ടു സിഗ്നൽ അനുസരിച്ച് ട്രെയിൻ നിർത്തുന്നതിൽ ലോക്കോ പൈലറ്റിനുണ്ടായ വീഴ്ചയാണ് ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായത്

രംഭട്ടിട്ടുള വോട്ടർപട്ടിക സുതാര്യവും കുറ്റമറ്റതുമാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി കൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ബി

കോഴിക്കോട് ജില്ലാതല അവ ലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നാലുമാസത്തെ കുടിശിക ഗവൺമെന്റ് ഉടൻ വിതരണം ചെയ്യണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു